അനൌപചാരിക ഉച്ചകോടിയിൽ ഇരു രാഷ്ട്രത്തലവൻമാരുടെയും നേതൃത്വത്തിൽ പ്രതിനിധിതല ചർച്ച നടന്നു

തൃപ്തനാണെന്ന് സംസ്ഥാന ്പൊലീസ് മേധാവി

കമ്പനികൾക്ക് നഗർസഭ അനുമതി നൽകി

മത്സരത്തിന്റെ രണ്ടാം ദിവസം ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച

കോമിന് വെങ്കലം

ഇരു രാജ്യങ്ങളും തമ്മിലുളള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് ഇരു നേതാക്കളും ചർച്ചു നടത്തിയത് ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ ചർച്ചകൾക്ക് ശേഷമായിരുന്നു ഇരുനേതാക്കളുടെയും അനൌപചാരിക ചർച്ചു പ്രധാനമന്ത്രി ഒരുക്കുന്ന ഉച്ചഭക്ഷണത്തോടെ ചരിത്രപരമായ ഉച്ചകോടി സമാപിക്കും ഇന്നലെ അനൌപചാരിക ചർച്ചകൾക്കായി തമിഴ്നാട്ടിൽ എത്തിയ ഷി ജിൻപിങിന് ഊഷ്മളവരവേൽപ്പാണ് നൽകിയത് കൂടത്തായി കോഴിക്കോട് കൂടത്തായി കേസ് ആന്നിഷണത്തിൽ തൃപ്തനാണെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബഹ്റ കൂടത്തായിയിൽ പൊന്നമറ്റം വീട് പരിശോക്രീച്ചശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഈ വിവരം കൂടതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു

എഡിഫൈസ് എഞ്ചിനീയറിംഗ് മൂന്ന് ഫ്ളാറ്റുകളും വിജയ് സ്റ്റീൽസ് ഒരു ഫ്ളാറ്റുമാണ് പൊളിക്കുക

ഡിസംബർ അവസാനമോ ജനുവരി ആദ്യവാരത്തിലോ ആണ് ഫ്ളാറ്റുകൾ പൊളിക്കുക ഇത് മൂലമുണ്ടാകുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ പ്രത്യേക ദർഘാസ് വിളിക്കാൻ നഗരസഭ തീരുമാനിച്ചു തെരുവു കച്ചവടക്കാർ തെരുവു കച്ചവടക്കാർക്ക് പ്രത്യേക സ്ഥലം നൽകുന്നത് സംബന്ധിച്ച ഉത്തരവുകൾ നടപ്പക്കാത്ത കൊച്ചി നഗരസഭയുടെ നിലപാടിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം നഗരസഭയുടെ നിലപാട് ദാർഷ്ട്യമാണെന്ന് കോടതി പറഞ്ഞു അടുത്ത ബുധനാഴ്ചക്കകം നഗരസഭ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ നഗരസഭ പിരിച്ചുവിടാൻ ഗവൺമെന്റിന് നിർദ്ദേശം നൽകുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി

മൂന്ന് മുന്നണികളുടെയും പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണ്

വട്ടിയൂർക്കാവ് കോന്നി അരൂർ എറണാകുളം മഞ്ചേശ്വരം എന്നീ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഓരോ വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള പരിശ്രമത്തിലാണ് മുന്നണികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേശ്വരത്തും സി

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോന്നിയിലും ഇന്നും പര്യടനം ആരംഭിക്കും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ

ജെ

ക്കുവേണ്ടി ദേശീയ നേതാക്കളായ ജെ

നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ ഡോ

വട്ടിയൂർക്കാവിലും കോന്നിയിലുമാണ് ദേശീയ നേതാക്കൾ പ്രചാരണ രംഗത്തെത്തുന്നത് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനുളള തിരക്കിലാണ്

ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ കട്ടപ്പന പീരുമേട് ദേവികുളം എന്നീ കോടതി കേന്ദ്രങ്ങളിലാണ് ലോക് അദാലത്ത്

സംസ്ഥാന ഡ്രഗ്സ് കൻട്രോൾ വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിലെ മരുന്ന് വ്യാപാരികളുടെ സംഘടനയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ മെഡിക്കൽ സ്റ്റോറുകളിലും മെഡിസിൻ ബിൻ സ്ഥാപിക്കും മഴ പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം

ഡാം ഷട്ടർ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തിപ്പെട്ടതോടെ തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി ഇന്നലെ ആറു ഷട്ടറുകളിൽ രണ്ടെണ്ണം ഉയർത്തിയിരുന്നു പേപ്പാറ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായാൽ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്ന് അധികൃതർ അറിയിച്ചു

ഇടുക്കി കുണ്ട്ള ഡാമിന്റെ ഒരു ഷട്ടർ രാവിലെ തുറന്ന് മാട്ടുപ്പെട്ടി ജലസംഭരണിയിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നു

ഗോത്രായനം ഇടുക്കി ദേവികുളത്ത് വില്ലേജ് എസ്റ്റൻഷൻ ഓഫീസർ ഇൻ സർവീസ് പരിശീലനാർത്ഥികൾക്കായുള്ള ഗോത്രായനം നാളെ തുടങ്ങും

എന്നാൽ റഫറിയുടെ തീരുമാനത്തിനെതിരെ ഇന്ത്യ അപ്പീൽ നൽകി ലോക ചാമ്പ്യൻഷിപ്പിൽ എട്ട് മെഡൽ നേടുന്ന ആദ്യ താരമെന്ന ബഹുമതിക്ക് ഇതോടെ മേരി കോം അർഹയായി അഫീൽ പാലായിൽ നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിനിടെ ഹാമർ തലയിൽ വീണ് പരിക്കേറ്റ അഫീൽ ജോൺസണിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ അറിയിച്ചു തലയിൽ ആഴത്തിൽ മുറിവേറ്റ് തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റ അഫീലിനെ കഴിഞ്ഞ ദിവസം ഏഴു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു

റോമിലെ മേജർ നാളെ ബസലിക്കയിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കു ശേഷമായിരിക്കും മറിയം ത്രേസ്യയ്ക്കൊപ്പം അഞ്ചുപേരെ വിശുദ്ധരായി ഫ്രാൻസിസ് മാർപാപ്പ പ്രഖ്യാപിക്കുന്നത് ബിഷപ്പ് ആലപ്പുഴ രൂപതയുടെ പുതിയ ബിഷപ്പായി ഡോ

വനിതാ കമ്മീഷൻ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടിയെടുത്ത ശേഷം വയോധികയെ വൃദ്ധസദനത്തിലാക്കിയ സംഭവത്തിൽ വൃദ്ധയ്ക്ക് സൌജന്യ നിയമ സഹായം ഉറപ്പ് വരുത്തുമെന്നും ബന്ധുക്കൾ തട്ടിയെടുത്ത സ്വത്തുക്കൾ തിരിച്ചെടുക്കാൻ നിയമനടപടികൾ സ്വീകരിക്കുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ പാലക്കാട് സ്വദേശിനിയായ എഴുപത് വയസ്സുള്ള വൃദ്ധയുടെ സ്വത്തുക്കൾ വിറ്റ പണം സഹോദരിയുടെ മക്കൾ കൈക്കലാക്കുകയായിരുന്നു പാവറട്ടി പാവറട്ടി എക്സൈസ് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി കീഴടങ്ങി സിവിൽ എക്സൈസ് ഓഫീസർ ബെന്നിയാണ് പോലീസിൽ കീഴടങ്ങിയത് ഹോട്ടൽ മിന്നൽ പരിശോധന ഗുരുവായൂരിലെ ഹോട്ടലുകളിൽ ആരോഗ്യവിഭാഗം അധികൃ തർ നടത്തിയ മിന്നൽ പരിശോധനയിൽ പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു ഗുരുവായൂർ കിഴക്കേനടയിലെ ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്